എം ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി ഏറ്റെടുത്ത നടപടി റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവെച്ചു ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണയിക്കാൻ സിവിൽ കോടതി കൾക്കാണ് അധികാരമെന്നും കോടതി ഇടുക്കി അടിമാലിയിലെ ഇ

ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ ഹോങ്കോങ്ങുമായി ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി ഏറ്റെടുത്തത് റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന ഗവണ്മെന്റ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ഹാരിസൺ മലയാളം ലിമിറ്റഡിമ്റെ കൈവശമുള്ള ഭൂമിയും അവർ വിറ്റ ഭൂമിയും തിരി ച്ചുപിടിക്കാൻ അന്നത്തെ സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാ ണിക്യം പുറപ്പെടുവിച്ച ഉത്തരവുകൾ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി ശരിവെച്ചത് ഹൈക്കോടതി വിധി ക്കെതിരെ ഗവൺമെന്റ് നൽകിയ അപ്പീൽ ജസ്റ്റിസ് ആർ എഫ് നരിമാൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് തള്ളിയത് കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു ഹാരിസൺ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണയിക്കാൻ ഭൂ സംര ക്ഷണ നിയമപ്രകാരം നിയോഗിച്ച ഉദ്യോഗസ്ഥന് അധികാരമി ല്ലെന്നും സിവിൽ കോടതികളാണ് ഇക്കാര്യം തീർപ്പാക്കേണ്ട തെന്നും സുപ്രീംകോടതി വ്യക്തമാക്തി

കേസിൽ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം സുപ്രീംകോടതി ശരിവെച്ചിരിക്കുകയാണ് ഇടുക്കി അടിമാലിയിലെ ഇ

ക്ലിനിക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തു

എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ബ്രാഞ്ച് ഓഫീസും ആശുപത്രിയുമാണ് ഇവിടെ ആരംഭിച്ചത്

ചലച്ചിത്ര നടനും സംവിധായകനുമായ ക്യാപ്റ്റൻ രാജു കൊച്ചിയിൽ അന്തരിച്ചു

മസ്തി ഷ്കാഘാതത്തെ തുടർന്ന് രാവിലെ പാലാരിവട്ടത്തെ വസതിയിൽ രാവിലെ എട്ടരയോടെ യായിരുന്നുഅന്ത്യം

പിന്നീട് കേരളത്തിൽ കൊണ്ടുവന്ന ശേഷം കൊച്ചി യിലെ വീട്ടിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു

ക്യാപ്റ്റനായി വിര മിച്ച ശേഷമാണ് സിനിമയിലെത്തിയത്

ഐ ഡി മൂസ്സ പഴശ്ശിരാജ ആനച്ചന്തം തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അഭിനയി ച്ചിട്ടുണ്ട്

ഇതാ ഒരു സ്നേഹഗാഥ മിസ്റ്റർ പവനായി എന്നീ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്

സംസ്കാരം പിന്നീട് നടക്കും മലയാള സിനിമയിൽ വില്ലൻവേഷങ്ങൾക്ക് പുതിയ മാനം നൽകിയ അഭിനേതാവായിരുന്നു ക്യാപ്റ്റൻ രാജു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ചല ച്ചിത്ര ലോകത്തിന് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ മരണം കൊണ്ടുണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വില്ലൻവേഷങ്ങൾക്ക് പുതുമാനം നൽകിയ ക്യാപ്റ്റൻ രാജു വിന്റെ മരണം കലാമേഖലയ്ക്ക് നികത്താനാവാത്ത നഷ്ടമാ ണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അനുശോചിച്ചു കലാ സാംസ്കാരിക ലോകം എന്നും സ്മരിക്കുന്ന വൃക്തി യാണ് നടൻ ക്യാപ്റ്റൻ രാജുവെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറ ഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെന്റ് തുടങ്ങി ചലച്ചിത്രമേഖല യിലെ പ്രമുഖരും ക്യാപ്റ്റൻ രാജുവിന്റെ നിര്യാണത്തിൽ അനു ശോചനമറിയിച്ചു പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായത്തി നായി ഗവൺമെൻറ് ആരെയും നിർബന്ധിക്കില്ലെന്ന് മന്ത്രി ഇ

ഒരു തരത്തി ലുമുള്ള സമ്മർദ്ദവും ഭീഷണിയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ന് മട്ടന്നൂരിലും തലശ്ശേരിയിലും മന്ത്രിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തും കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന പരാതി നേരിടുന്ന ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാർപാപ്പയ്ക്ക് കത്തയച്ചു ഭരണചുമതലയിൽ നിന്ന് താൽക്കാലികമായി ഒഴി വാക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നിയമനടപടികളുമായി സഹ കരിക്കാൻ സമയം വേണമെന്നും അതുവരെ ചുമതലകളിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കത്തിൽ വ്യക്ത മാക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പൊലീസ് നോട്ടീസ് നൽകി യതിനെ തുടർന്ന് രൂപതയുടെ ചുമതല ഫാ മാത്യു കോക്കണ്ട ത്തിന് കൈമാറിയതായി കാണിച്ച് ബിഷപ്പ് നേരത്തെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഫാദർ ജോസഫ് തേക്കുംകാട്ടിൽ ഫാ സുബിൻ തെക്കേടത്ത് എന്നിവർക്കും ചുമതല വിഭജിച്ച് നൽകി യിട്ടുണ്ട് അതിനിടെ ഫ്രാങ്കോ മുളയ്ക്കൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്

സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാവിലെ പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹോദരി അനി ശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചു സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണെന്ന് സമരനേതാക്കൾ അറിയിച്ചു

നാളെ സംസ്ഥാന വ്യാപകമായി പന്തംകൊളുത്തി പ്രകടനം നടത്തുമെന്നും അവർ അറിയിച്ചു

കർണാടകയിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ടുരൂപ കുറച്ചു

രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് പശ്ചിമബം ഗാൾ ഗവൺമെന്റുകളും അടുത്തിടെ ഇന്ധനവിലയിൽ കുറവ് വരു ത്തിയിരുന്നു ഇന്ധ ന വില കുറ യ് ക്കു ന്ന തിന് കേന്ദ്ര ഗ വൺ മെന്റ് നടപടി സ്വീകരിക്കണമെന്നും എക്സൈസ് തീരുവ കുറയ്ക്കണ മെന്നും മന്ത്രി ഇ

കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബിയിൽ ഇന്ന്അബുദാബിയിൽ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും

ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാക്കിസ്ഥാൻ മത്സരം മറ്റന്നാൾ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും ഇന്നലെ പാകിസ്ഥാൻ ഹോങ്കോങിനെ എട്ട് വിക്കറ്റിന് പരാജ യപ്പെടുത്തിയിരുന്നു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലൈസൻസ് നൽകു ന്നതിന് മുന്നോടിയായി അവസാന വട്ട പരിശോധനകൾക്ക് വ്യോമ യാന വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വൈകിട്ട് മട്ടന്നൂരിലെ ത്തും പരിശോധന മൂന്നു ദിവസം നീളും

വിമാനത്താവളം അടുത്തമാസം അവസാനം ഉദ്ഘാടനം ചെയ്ത് നവംബറിൽ സർവ്വീസ് ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ ടൂറിസം രംഗത്ത് വലിയ പുരോഗതിയാണ് ഉണ്ടാകുകയെന്ന് മന്ത്രി രാമച ന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു ഇക്കാര്യത്തിൽ സഹകരണ മേഖലയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജില്ലാസഹകരണബാങ്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേ ജ്മെന്റും സംയുക്തമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന സ്കൂൾ കലോ ത്സവം ഡിസംബറിൽ ആലപ്പുഴയിൽ തന്നെ നടത്തുമെന്ന് മന്ത്രി സി

പരമാവധി ചെലവ് കുറച്ചായിരിക്കും കലോത്സവം സംഘ ടിപ്പിക്കുകയെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് കലോ ത്സവ മാന്വൽ കമ്മറ്റി യോഗത്തിന് ശേഷം വാർത്താസമ്മേളന ത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കലോത്സവത്തിൽ പങ്കെ ടുക്കുന്ന കുട്ടികൾക്ക് വൃക്തിഗത ട്രോഫികൾ ഒഴിവാക്കി ഗ്രേസ് മാർക്കും സർട്ടിഫിക്കറ്റും നൽകും

പി യു

കായികമേള അടുത്തമാസം അവസാനം തിരുവനന്തപുരത്ത് നടത്തും ശാസ്ത്രോത്സവം നവംബറിൽ കണ്ണൂരിൽ നടത്തു മെന്നും മന്ത്രി അറിയിച്ചു

എല്ലാ മേളകൾക്കും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്ത മാക്കി

ഇടത്തരം വലിയ വിമാനങ്ങൾക്ക് അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ മറ്റുവിമാനത്താവളങ്ങളിലേക്ക് മാറ്റിയ സർവീസു കളും കരിപ്പൂരിൽ പുന രാരംഭിക്കും സൌദി എയർലൈൻസിന് മാത്രമാണ് നിലവിൽ ഇടത്തരം വലിയ വിമാ നങ്ങളുടെ സർവീസിന് കരിപ്പൂരിൽ അനുമതിയുള്ളത്

നിലയ്ക്കൽ പമ്പ റൂട്ടിൽ കെ

ടി സി വർധിപ്പിച്ച യാത്രാനിരക്ക് കുറയ്ക്കില്ലെന്ന് മന്ത്രി എ

ഇന്ധനവില വർധനയാണ് നിരക്ക് വർധിപ്പിക്കാൻ കാര ണമെന്ന് അയ്യപ്പ ഭക്തർക്ക് മനസ്സിലാവുമെന്ന് അദ്ദേഹം ഒരു വാർത്താചാനലിനോട് പറഞ്ഞു ദേവസ്വം ബോർഡ് വാഹന സർവീസ് ഏർപ്പെടുത്തിയാൽ കെ എസ്

ടി സി പിന്മാറു മെന്നും മന്ത്രി അറിയിച്ചു കോഴിക്കോട് നഗരത്തിന് നനവുപകരുന്ന കനോലി കനാലിനെ വീണ്ടെടുക്കാൻ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ രണ്ടാംഘട്ടത്തിന് തുടക്കമായി

ഇരുകരകളിലെയും താമസക്കാർകൂടി ഉൾപ്പെടുന്ന എട്ട് സെക്ടർ കമ്മറ്റികൾക്കായിരിക്കും കനാലിന്റെ സംരക്ഷണച്ചുമതല പ്രളയത്തിൽ സംസ്ഥാനത്തെ സാംസ്കാരിക മേഖലയ്ക്കുണ്ടായ ആഘാതത്തെക്കുറിച്ച് പഠിക്കാൻ യുനെസ്കോയുടെ പ്രത്യേക സംഘം ഇന്ന് കേരളത്തിലെത്തും യുനെസ്കോ ഡൽഹി ഓഫീ സിലെ സാംസ്കാരിക വിഭാഗം മേധാവി പ്രോഗ്രാം മാനേജർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പഠനം നടത്തുന്നത്

പ്രളയദുരിതാശാസത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് വിവേ ചനം കാണിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ

പി നേതാവ് എം എസ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലോവർ പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു